ആരോഗൃ പരിരക്ഷ ലഭൃമാക്കാൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൻ ഔഷധി കേന്ദ്ര ഉടമകളുമായും ഉപഭോക്താക്കളുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി

ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ തുടക്കം

ജൻ ഒരുഷ്ധി ദിവസ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ്ജൻ ഔഷധി കേന്ദ്ര ഉടമകളുമായും ഉപഭോക്തൂർക്കളുമായും വീഡിയോ കോൺഫറൻസിംഗിലൂടെ ്ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം സാധാരണക്കാർക്ക് മിതമായ നിരക്കിൽ മികച്ച ഗുണനിലവാരമുള്ള മരുന്നുകൾ ലഭ്യമാക്കുക ലക്ഷ്യമിട്ടാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്

ജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ മികച്ച ചികിത്സ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്

കുറഞ്ഞ ചെലവിൽ മികച്ച ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി എല്ലാ സർക്കാർ ആശുപത്രികളോടും ഡോക്ടർമാരോടും ജനറിക് മരുന്നുകൾ കുറിച്ച് നൽകാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്

ഇത് വൈറസ് ബാധ പകരാ്തിരിക്കാൻ വഴിയൊരുക്കുന്നതാള്ളെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പനി ചുമ തൊണ്ടവേദന തുടങ്ങിയ രോഗ ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സിക്കാതെ വൈദ്യസഹായം തേടണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയ സെക്രട്ടറി കൊറോണ വൈറസ് ബാധ പടരുന്നതിനെതിരെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി സ്വീകരിച്ച നടപടികൾ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കൂട്ടു പ്രവിവിധ പ്രാദേശിക ഭാഷകളിൽ പ്രതിരോധ മുൻകരുതിൽ നടപടികൾ വാർത്താ വിതരണ മന്ത്രാലയം പ്രചരിപ്പിച്ചു് വർുന്നുണ്ട്

രോഗം പകരുന്നത് തടയാൻ ഹസ്തദാനം ഒഴിവാക്കി കൂപ്പുകൈ നമസ്ക്കാരം പിൻതുടരണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

ജനങ്ങൾ ഒത്തുകൂടുന്ന തിരക്കുള്ള പരിപാടികൾ ഒഴിവാക്കണമെന്നും ശ്രീ

കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിൽ മുഖാവരണത്തിന് ഉയർന്ന വില ഈടാക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്ത് വന്നതിനെ തുടർന്നാണ് ശ്രീ

കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിനായി ജനങ്ങൾക്കിടയിൽ ബോധവത്കരണം നട്ടിത്ത്ണമെന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂട്ടെ നടന്ന ചർച്ചയിൽ കേന്ദ്ര മന്ത്രിമാരും അവരുടെ പ്രതിനിധികളും ആവശ്യപ്പെട്ടു

രോഗം ബാധിച്ചുവെന്ന് സംശയിക്കുന്ന രു പേരുടെയും പരിശോധനാ ഫലങ്ങൾ ലഭിച്ചെന്നും ഇവർ ജമ്മു മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിലാണെന്നും ജമ്മുകശ്മീർ സർക്കാർ വക്താവ് രോഹിത് കൻസാൽ പറഞ്ഞു

ഇരു ചാനലുകളുടേയും ബോർഡ് മെമ്പർ പ്രതിനിധികൾ മന്ത്രാലയവുമായി നടത്തിയ ചർച്ചകൾക്ക് ഒടുവിലാണ് നടപടി റദ്ദാക്കിയത്

രോഗബാധിത പ്രദേശത്തെ മുഴുവൻ വളർത്തു പക്ഷിക്ടുളേയും നശിപ്പിക്കാൻ തീരുമാനിച്ചു

നിക്ഷേപകരുടെ താത്പര്യ സംരക്ഷണാർത്ഥം റിസർവ്വ് ബാങ്ക് രൂപം നൽകിയ പുനസംഘടനാ പദ്ധതി ഒരു മാസത്തിനുളളിൽ നടപ്പാക്കും യെസ് ബാങ്ക് ജീവനക്കാരുടെ ശമ്പളവും ജോലിയും ഒരുവർഷത്തേയ്ക്ക് ഉറപ്പു നൽകുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു

അതിനിടെ യെസ് ബാങ്ക് സ്ഥാപകൻ റാണ കപൂറിനും ഭാരൃയ്ക്കുമെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു

ഐ

്രജനീഷ് കുമാർ മുംബൈയിൽ നടത്തിയ പത്രസമ്മേളനുത്തിൽ ്പറഞ്ഞു

ചൈനയെ അപേക്ഷിച്ച് യു എസിൽ കൊറോണ വൈറസ് നിയന്ത്രണ വിധേയ്യമാണെന്നും ഡോണൾഡ് ട്രംപ് പറഞ്ഞു

മഴയിലും കാറ്റിലും നിരവധിപ്പേർ മരിക്കുകയും കൃഷിനാഴും ഉൾപ്പെടെ നാശനഷ്ടങ്ങൾ ഉ ാവുകയും ചെയ്തു

വിവിധ കായിക ഇനങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊ ണ്ടുള്ള ഗെയിംസ് ജമ്മു കശ്മീർ സ്പോർട്സ് കൌൺസിൽ കേന്ദ്ര കായിക മന്ത്രാലയവുമായി ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്

വാർധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് ചെന്നൈയിലെ അപ്പോള ആശുപത്രിയിലായിരുന്നു അന്ത്യം